കേന്ദ്രഭരണപ്രദേശങ്ങളിലും കോപ്പിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗൃമന്ത്രി ഫ്റർഷ് വർദ്ധൻ

വന്ദേ ഭാരത് ദൌതൃത്തിന്റെ ഭാഗമായി നാല് വിമാനങ്ങൾ ന് പ്രവാസികളുമായി ഇന്ന് മടങ്ങിയെത്തും

ഇതര സംസ്ഥാന തൊഴിലാളികളെ മടക്കിയെത്തിച്ചതായി കേന്ദ്രസർക്കാർ

സി എം ആർ പരിശോധനാ സൌകര്യം വർദ്ധീപ്പിക്കുകയാണ്

അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗോവ ഛാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കശ്മീർ ലഡാഖ് കേരള ഒഡീഷ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുതിയ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദാമൻ ദിയു സിക്കിം നാഗാലാന്റ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഇതുവരെ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഉത്തർപ്രദേശിലെയും ഒഡീഷയിലെയും പശ്ചിമബംഗാളിലെയും കോവിഡ് പ്രതിരോധ നടപടികൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വിലയിരുത്തി

മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ സ്ഥിതി മെച്ചപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു

ഹോട്ടലുകൾ സർവ്വീസ് അപാർട്ട്മെന്റുകൾ ലോഡ്ജുകൾ തുടങ്ങി സ്വകാര്യ സംവിധാനങ്ങളിലും തിരിച്ചെത്തുന്ന വൃക്തികൾക്ക് നിരീക്ഷണത്തിൽ കഴിയാമെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നു

കിടപ്പുമുറിയോട് ചേർന്ന ശുചിമുറിയോട്ട് കൂടിയ ഇത്തരം സംവിധാനങ്ങളുടെ നിരക്ക് സംസ്ഥീന് സർക്കാരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നിർണ്ണയിക്കേണ്ടത്

ബഹ്റിനിൽ നിന്നും കൊച്ചിയിലേക്കും റിയാദിൽ നിന്നും കോഴിക്കോട്ടേയ്ക്കുമാണ് ഈ വിമാനങ്ങൾ

ഇന്നലെ മാലിയിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ നാവിക കപ്പലായ ഐ

എസ് ജലാശ്വയിലാണ് ഇവർ യാത്ര തിരിക്കുക ആദ്യഘട്ടത്തിൽ രണ്ട് കപ്പലുകളിലായി രണ്ടായിരത്തോളം ഇന്ത്യക്കാരെ തിരികെയെത്തിക്കാനാണ് ഇന്ത്യൻ നാവികസേന ഉദ്ദേശിക്കുന്നത് യാത്രയ്ക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആരോഗ്യപ്രശ്നങ്ങൾ ഉള്ളവർ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികൾ ഗർഭിണികൾ തൊഴിൽ നഷ്ടമായവർ എന്നിവർക്കാണ് പ്രധാന പരിഗണന നൽകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു കപ്പലായ ഐ

എസ് മഗർ അടുത്തയാഴ്ച ആയിരത്തിലധികം ഇന്ത്യൂക്കാർു്മായി മാൽദ്വീവ്സിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് യാത്ര തിരിക്കും

രണ്ടുപേർക്ക് പരിക്കേറ്റു സ്വന്തം സംസ്ഥാനമായ മധ്യപ്രദേശിലേക്ക് റെയിൽവേ ട്രാക്കിലൂടെ കാൽനടയായി മടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ യാത്രയ്ക്കിടയിൽ വിശ്രമിക്കുമ്പോഴാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് അറിയിച്ചു

സംഭവത്തിൽ റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു

ഇതിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്ന രണ്ടു ലക്ഷത്തോളം പേരെ സ്വന്തം നാട്ടിൽ എത്തിക്കാനായി

ഗുജറാത്തും കേരളവുമാണ് ഏറ്റവും കൂടുതൽ പ്രത്യേക ട്രെയിൻ സർവ്വീസ് നടത്തിയത് യാത്ര ചെയ്യുന്നവരിൽ അധികവും ബിഹാർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്

അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ജില്ലയിൽ നിന്ന് തിരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനാണിത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര മന്ത്രി അമിത് ഷായും ആന്ധ്രാ പ്രദേശ് മുഖ്യമന്ത്രി വൈ

വിശാഖപട്ടണം വിഷവാതക ദുരന്തത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു പ്രദേശവാസികളുടെ സുരക്ഷയ്ക്കായി സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു

ഐ

രാജ്യത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ജെ

ഇ

പരീക്ഷാർത്ഥികൾ നേരത്തെ നൽകിയിട്ടുള്ള പരീക്ഷാകേന്ദ്രങ്ങൾക്കു പകരം പുതിയ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

എസ് സി നേരത്തെ മാറ്റിവച്ചിരുന്നു

ജാപ്പനീസ് കമ്പനികളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കുന്നതിനായി ജാപ്പനീസ് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിക്കാനും തീരുമാനിച്ചു

മറ്റൊരു രാജ്യത്തെ വിമാനസേവനവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ വീഡിയോ ആണിതെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി

റേഷൻ കാർഡ് നമ്പരുകളുടെ അവസാന അക്കം കണക്കാക്കി തിയതി ക്രമീകരിച്ചിട്ടുണ്ട്

ജമ്മു കശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ വ്വിദ്യാർത്ഥികളാണ് എല്ലാവരും

വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെടുമെന്ന് അവർ അറിയിച്ചു